ചേർന്ന് പ്രവർത്തിക്കാൻ ഗവർണർമാരോട് ഉപരാഷ്ട്രപതി

രാജ്യത്ത് കോവിഡ് അതിരൂക്ഷിമാ്യി തുടരുന്നു

പുതിയ പദ്ധതി ആരംഭിച്ചു

റോയൽ ചലഞ്ചേഴ്സ് ബാംഗ്ലൂരിന് ആറ് റൺസ് ജയം

മഹാമാരിയെ തുരത്തുന്നതിന് കൂടുതൽ ഫലപ്രദമായ തന്ത്രം രൂപപ്പെടുത്തുന്നതിന് സംസ്ഥാന സർക്കാരുകൾക്ക് മാർഗ്ഗനിർദ്ദേശം നൽകാൻ ഗവർണർമാർക്ക് സാധിക്കുമെന്നും അദ്ദേഹം പറഞ്ഞു കോവിഡുമായി ബന്ധപ്പെട്ട സ്ഥിതിഗതികൾ വിലയിരുത്തുന്നതിന് ഗവർണർമാരുമായും ലഫ്റ്റനന്റ് ഗവർണർമാരുമായും സംവദിക്കുകയായിരുന്നു അദ്ദേഹം

ജനകീയ മാർഗ്ഗങ്ങളിലൂടെ കോവിഡിനെതിരായ പോരാട്ടം മുന്നോട്ടുകൊണ്ടുപോകാൻ സംസ്ഥാന സർക്കാരുകളെ സഹായിക്കണമെന്നും അദ്ദേഹം ഗവർണ്ണർമാ്രോട് ആവശ്യപ്പെട്ടു മഹാമാരിക്കെതിരായ പോരാട്ടത്തിൽ ്വീദ്യാഭ്യാസ സ്ഥാപനങ്ങൾ ഉൾപ്പെടെ സജീവ പങ്കാളികളായിരുതീർന്നിട്ടുണ്ടെന്നും അദ്ദേഹം പറഞ്ഞു

രാജ്യത്ത് വാക്സിൻ ക്ഷാമമില്ലെന്നും വാക്സിനേഷൻ യജ്ഞത്തിനുളള സംസ്ഥാനങ്ങളുടെ ആസൂത്രണം മെച്ചപ്പെടേണ്ടതാണെന്നും കേന്ദ്രസർക്കാർ വൃക്തമാക്കി

കോവിഡിനെതിരായ രണ്ടാമത്തെ വലിയ യുദ്ധത്തിന്റെ തുടക്കമെന്നാണ് വാക്സിനേഷൻ ഉത്സവത്തെ പ്രധാനമന്ത്രി വിശേഷിപ്പിച്ചത്

ഇന്നലെ രാത്രി എട്ട് മുതലാണ് നിയന്ത്രണങ്ങൾ നിലവിൽ വന്നത് അവശ്യ സേവനങ്ങൾ മാത്രമേ പതിവുപോലെ പ്രവർത്തിക്കാൻ അനുവദിക്കുകയുള്ളൂവെന്ന് മുഖ്യമന്ത്രി ഉദ്ദ്വ് താക്കറെ പറഞ്ഞു രാവിലെ ഏഴ് മുതൽ രാത്രി എട്ട് വര്യെന്റ്രീങ്ടുനിൽക്കുന്ന പകൽ കർഫ്യൂ രണ്ടാഴ്ച തുടരുമ്പെണ്ട് ിആകാശവാണി പ്രതിനിധി റിപ്പോർട്ട് ചെയ്യുന്നു

ജില്ലാ കളക്ടർമാർ പോലീസ് അധികാരികൾ എന്നിവരുമായുള്ള വെർച്ചൽ യോഗത്തെ അഭിസംബോധന ചെയ്യുകയായിരുന്നു അദ്ദേഹം കോവിഡിനെതിരായ പോരാട്ടത്തിൽ ഒരു വിമുഖതയും സമ്മതിക്കില്ലെന്നും അദ്ദേഹം പറഞ്ഞു

കളക്ടർമാർ ജില്ലാ പൊലീസ് മേധാവികൾ ജില്ലാ മെഡിക്കൽ ഓഫീസർമാർ എന്നിവർ പങ്കെടുക്കും

ഇരു ജില്ല്കളിലും രോഗബാധ ആയിരത്തിന് മുകളിലാണ്

മകന് കോവിഡ് സ്ഥിരീകരിച്ചതിന് പിന്നാലെയാണ് മന്ത്രിക്ക് ആർ

തുടർന്ന് രോഗം സ്ഥിരീകരിക്കുകയായിരുന്നു

ഇന്ത്യയും ലോകവും അഭിമുഖീകരിക്കുന്ന പട്ടിണിയുമായും രോഗ്നങ്ങളുമായും ബന്ധപ്പെട്ട പ്രശ്ന പരിഹാരത്തിന് പദ്ധതി സഹായിക്കുമ്മെന്ന് ആരോഗ്യമന്ത്രി ഡോ

ഇവയ്ക്ക് പരിഹാരം കാണു്സ്തിന്റെ ഭാഗമായാണ് ആഹാർ ക്രാന്തി ആരംഭിച്ചത്

ഇന്ന് രാജസ്ഥാൻ റോയൽസ് മുംബൈയിലെ വാങ്കഡെ സ്റ്റേഡിയത്തിൽ ഡൽഹി ക്യാപ്പിറ്റൽസിനെ നേരിടും

കർഷകരുടെ അഭിവൃദ്ധിക്കും വരുമാന വർദ്ധനവിനും വേണ്ടി വിവിധ പരിപാടികൾ നടപ്പിലാക്കുന്നതിനാണ് ധാരണയായത് ചെലവുകൾ കുറച്ച് കൃഷി എളുപ്പമാക്കുന്ന പദ്ധതികളാണ് ആസൂത്രണം ചെയ്യുക

നേരത്തെ ബിജെപി പ്രസിൾന്റ് ജെ

കോൺഗ്രസ് നേതാവ് രാഹുൽ ഗാന്ധി ഡാർജിലിംഗ് ജില്ലയിലെ മാറ്റിഗരയിൽ നടന്ന തെരഞ്ഞെടുപ്പ് റാലിയെ അഭിസംബോധന ചെയ്തു

വിദേശകാര്യമന്ത്രി ഡോ എസ് ജയശങ്കറുമായി കൂടിക്കാഴ്ച നടത്തുന്ന അദ്ദേഹം പ്രാദേശിക അന്തർദ്ദേശീയ വിഷയങ്ങളിൽ ചർച്ച നടത്തും

രാവിലെ ഏഴ് മുതൽ വൈകിട്ട് ആറ് വരെയാണ് വോട്ടെടുപ്പ് പോളിംഗ് കേന്ദ്രങ്ങളിൽ കോവിഡ് പ്രോട്ടോകോൾ കർശനമായി പാലിക്കാൻ സംസ്ഥാന തെരഞ്ഞെടുപ്പ് കമ്മീഷൻ മനോജ് കുമാർ നിർദേശം നൽകി

ഇന്നുമുതൽ ബംഗ്ലാദേശ് സർക്കാർ നടപ്പിലാക്കുന്ന ലോക്ഡൌൺ കണക്കിലെടുത്താണ് ഇതെന്ന് ഇന്ത്യൻ ഹൈക്കമ്മീഷൻ അറിയിച്ചു